അയൽരാജ്യങ്ങൾക്ക് പ്രഥമ നൽകുന്നതാണ് ഗവൺമെന്റ് നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്തോ നേപ്പാൾ അതിർത്തിയില്ലെട്ട് ജോഗ് ബാനി ബിരാട് നഗർ മേഖലയിൽ സ്ഥാപിച്ച ശ്രണ്ടാമത് സംയോജിത ചെക്ക് പോസ്റ്റ് നേപ്പാൾ പ്രധാനമന്ത്രിയ്ക്കൊപ്പം വീഡിയോ കോൺഫറൻസിങ്ങിലൂള്ളുട്ട് ഉദ്ഘാടനം ചെയ്തശേഷം സംസാരിക്കുകയായിരുന്നു് ശ്രീ

വ്യാപാരവും യാത്രാ സൌകര്യവും സുഗമമാക്കുന്നതിന് ഇന്ത്യയുടെ സഹായത്തോടെയാണ് ചെക്ക് പോസ്റ്റ് നിർമ്മിച്ചത് റോഡ് റെയിൽ വൈദ്യുത പ്രസരണം തുടങ്ങിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും നേപ്പാളും യോജിച്ച് പ്രവർത്തിച്ചു വരികയാണെന്ന് ശ്രീ

ഇരു രാജ്യങ്ങളുടേയും പ്രധാന അതിർത്തികളിലുള്ള സംയോജിത ചെക്ക് പോസ്റ്റുകൾ ഉഭയകക്ഷി വ്യാപാരം സുഗമമാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

കാര്യക്ഷമമായ ഭരണ നിർവ്വഹണത്തിനും സമയ ബന്ധിതമായ പദ്ധതി നടപ്പാക്കലിനുമായി തയ്യാറാക്കിയ വിവരസാങ്കേതിക വിദൃയിലധിഷ്ഠിതമായ സംവിധാനമാണ് പ്രഗതി

വെള്ളിയാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്റിവാൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഏഴ് സ്ഥാനാർത്ഥികളടങ്ങുന്ന മൂന്നാമത്തെ പട്ടിക കോൺഗ്രസ് ഇന്ന് പുറത്തുവിട്ടു

മുൻ കോൺഗ്രസ് എം

എ

തിരുവനന്തപുരം കോഴിക്കോട് സ്വദേശികളാണ് മരിച്ചത്

ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെ ഗ്യാസ് ഹീറ്ററിൽ നിന്നുമുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം തിരുവന്തപുരം ചേങ്കോട്ടുകോണം സ്വദേശികളായ ഒരു കുടുംബവും കോഴിക്കോട് കുന്ദമംഗലം സ്വദേശികളായ മറ്റൊരു കുടുംബവുമാണ് അപകടത്തിൽ മരിച്ചത് സംഭവത്തിൽ കേന്ദ്ര വിദേശകാരൃ മന്ത്രി എസ്

നേപ്പാളിലെ ഇന്ത്യൻ എംബസി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ച മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വൃക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് നോർക്ക അധികൃതർ നേപ്പാളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യലയവുമായി ബന്ധപ്പെടുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം നാളെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാവുമെന്നാണ് കരുതുന്നത് ദാരുണമായ സംഭവത്തിൽ മുഖ്യമന്ത്രി അഗാധദുഖം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ

സാധാരണപ്പൂജനങ്ങളെ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി ് മാറ്റുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് വിവരസാങ്കേതിക വിദൃയുമായി ബന്ധപ്പെട്ട ഗവേഷണ വികസന രംഗങ്ങളിലെ സുപ്രധാന കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റണമെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് ആഹ്വാനം ചെയ്തു

കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു അനുരാഗ് താകൂർ നിതിൻ ഗഡ്കരി എന്നിവരും കശ്മീർ താഴ്വരയിൽ വിവിധയിടങ്ങൾ സന്ദർശിക്കും ന്യൂനപക്ഷകാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ സന്ദർശനം ഇന്നാരംഭിച്ചു കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ് രമേശ് പൊഖ്രിയാൽ എന്നിവരും താഴ്വരയിൽ സന്ദർശനത്തിന് എത്തും

കൊൽക്കത്തയിലെ യൂക്കോ ബാങ്കിൽ നിന്നും വ്യാജ രേഖകൾ ഉപയോഗിച്ച് വായ്പാ തട്ടിപ്പ് നടത്തി എന്നതാണ് കേസ്

ജിതേന്ദ്രസിംഗ് വിദ്യാർത്ഥികളോട് ആഹാനം ചെയ്തു സേൺ ഇനോര തുടങ്ങി എട്ട് മെഗാ ശാസ്ത്ര പദ്ധതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനായാണ് രണ്ട് മാസം ദൈർഘ്യമുള്ള വിഗ്യാൻ സമാഗം സംഘടിപ്പിച്ചിരിക്കുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

നടപ്പിലാക്കുന്നതിലെ പാളിച്ച കാരണം പല ഗവൺമെന്റ് പദ്ധതികളുടേയും പ്രയോജനം ചെറുകിട കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു

തോമർ വ്യക്തമാക്കി

മഹത്തായ ഭൂതകാലത്തെ സ്മരിക്കുകയും അവ യുവ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് മുഖ്യമന്ത്രി കോൺറാഡ് കെ സാങ്മ ചടങ്ങിൽ ഓർമപ്പെടുത്തി

മൌലികാവകാശങ്ങൾ പൌരന്മാർക്ക് ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന മൌലിക കടമകളും മുന്നോട്ട് വയ്ക്കുന്നു

ഏഴുമന്ത്രിമാരടങ്ങിയ സംഘവും ബ്രസീലിയൻ പ്രപസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്

അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് മൂന്നാം തവണയാണ് ഒരു പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടുന്നത്

മറ്റൊരു പ്രസിഡന്റായ റിച്ചാഡ് നിക്സൺ വിചാരണയ്ക്ക് മുമ്പായി രാജിവച്ചിരുന്നു രാഷ്ട്രീയ എതിരാളിയായ ഡെമോക്രാറ്റിക് നേതാവ് ജോ ബൈഡനെതിരെ അന്വേഷണം നടത്താൻ ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തിയതായതാണ് ട്രംപിനെതിരായ കുറ്റാരോപണം തെരഞ്ഞെടുപ്പ് നടക്കാൻ വെറും പത്തു മാസം ശേഷിക്കേയാണ് ട്രംപിനെതിരായ വിചാരണാ നടപടികൾ ചീഫ് ജസ്റ്റിസ് ജോൺ റോബോർട്ട്സ് ആണ് വിചാറണ നട്ടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ട്രംപ് അധികാര ദുർപ്പിന്റിയ്ക്ഗം നടത്തിയിട്ടുണ്ടോ എന്ന് ഇംപീച്ച്മെന്റ് പ്രമേയങ്ങൾ പ്രിശോധിച്ച ശേഷം ജൂറി അംഗങ്ങൾ തീരുമാനമെടുക്കും

പതിനേഴ് വയസിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെ ഫുട്ബോളിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അസമിനെതിരെ മിസോറാമിന് വിജയം

കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവേണിംഗ് ബോഡി യോഗങ്ങളിലാണ് അംഗീകാരം നൽകാനുള്ള തീരുമാനം